ഒന്നിന് നടപ്പാക്കും ഡൽഹി കോടതി മരണവാറണ്ട് പുറപ്പെടുവിച്ചു ഒരു പ്രതി സമർപ്പിച്ച ദയാ ഹർജി രാഷ്ട്രപതി തള്ളി

നേരത്ത് ദയാഹർജി നിരസിച്ച ശുപാർശയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരുന്നു

ഇക്കാര്യം സംശയത്തിനതീതമാണെന്ന് ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതി നിക്കോളാസ് ആർ

വിശദാംശങ്ങളുമായി കൃഷ്ണ

പാകിസ്ഥാൻ വിഷയം രക്ഷാസമിതിയിൽ കൊണ്ടു വന്നത് ശരിയായ നടപടിയല്ല

റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കശ്മീർ വിഷയം യു

സിംല കരാറിലെയും ലഹോർ പ്രഖ്യാപനത്തിലെയും വൃവസ്ഥകളനുസരിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും സ്ഥാനപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭീകരാക്രമണത്തിന് ഇരകളാകുന്ന സാധാരണക്കാരുടെ കുടുംബം ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഐ

സ്ഫോടനത്തിൽ ഇരകളാകുന്നവരുടെ കുടുംബം തുടങ്ങിയ്വർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ആധ്ടാർ കാർഡ് തെളിവായി നൽകേണ്ടതെന്ന് കേന്ദ്ര ആഭ്യന്തൂര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയ്ക്കുന്നു

നിയന്ത്രണങ്ങൾ നീക്കാനും തടവുകാരെ മോചിപ്പിക്കാനുമുള്ള നടപടികളുടെ ഭാഗമായാണ് തീരുമാനം

ഇന്ത്യാ ഇറാൻ ബന്ധം മതത്തിനും സമ്പത്തിനും അതീതമാണെന്ന് സരീഫ് പറഞ്ഞു മുംബൈയിൽ വിമാനത്താവള അതോറിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇറാൻ ജനതയ്ക്കെതിരെയാണ്ഠെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു

ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നിയമത്തിനെതിരായ പ്രതിഷേധം രാജ്യത്തെ ദുർബലമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്സി ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറി ബി

കേന്ദ്രമന്ത്രിസഭാ സമിതിയിലെ എല്ലാ അംഗങ്ങളും ജമ്മുകൾമീർ സന്ദർശിക്കണമെന്ന് ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആഗ്രഹിക്കുന്നതായി കത്തിൽ പറയുന്നു

ജെ

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ സംബന്ധിച്ചു അടുത്ത മാസം എട്ടിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്

ഗവൺമെന്റിന്റെ നടപടികൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കേണ്ടത് തന്റെ ചുമതലയാണ് നിയമവും ഭരണഘടനയും ഏവർക്കും മുകളിലാണെന്നും അത് അനുസരിക്കാനും പാലിക്കാനും ഉള്ളതാളുണ്ണും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

പ്രത്യേക ഡയറക്ട്രേറ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു

ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച ബൂത്ത്തലത്തിൽ അഞ്ച് വയസിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളി മരുന്ന് വിതരണം ചെയ്യും തിങ്കളും ചൊവ്വയും പോളിയോ തുള്ളി മരുന്ന് എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് വീട് വീടാന്തരം കയറി തുള്ളിമരുന്ന് നൽകും

ഇതേ ഇനത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തമിഴ്നാടിന്റെ ധനുഷിനാണ് സ്വർണം

മൂന്നു മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്തൃക്ക് ഇന്നത്തെ മത്സരം നിർണ്ണായകമാണ്

ആർ സി ടി

സ്വകാരൃമേഖലയിലെ തേജ്സ് എക്സ്പ്രസിൽ ലോകോത്തര നിലവാരത്തിലുള്ള സൌകൃതൃങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

ഞായറാഴ്ച മുതൽ റഗുലർ സർവ്വീസ് ആരംഭിക്കും പൂർണ്ണമായി ശീതികരിച്ച ട്രെയിനിൽ സി സി ടി വി കൃാമറ ഉൾപ്പെടെ മികച്ച സുരക്ഷ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

ചില രാജൃങ്ങൾ ഇന്തൃയുടെ സ്ഥിതിഗതികൾ മോശമായി ചിത്രീകരിച്ചിരുന്നതായും ഇവയെല്ലാം മറികടന്നാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു